എ ഭരണം നിലനിർത്തി

വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപ്പിക്ക് മേൽക്കൈ

എൽ ക്രിക്കറ്റ് കിരീടം മുംബൈ ഇന്ത്യൻസിന്

ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ തകർത്തത് അഞ്ച് വിക്കറ്റിന്

എ ഭരണം നിലനിർത്തി

ഡി എ യ്ക്ക് വൃക്തമായ ഭൂരിപക്ഷമുണ്ട്

ഡി

മറ്റുള്ളവർക്ക് എട്ട് സീറ്റും

ഹിന്ദുസ്ഥാനി അവാമി മോർച്ച വികാസ് ശീൽ ഇൻസാൻ പാർട്ടി എന്നിവർക്ക് ഓരോ സീറ്റ് ലഭിച്ചു

ഐഎം പാർട്ടികൾക്ക് രണ്ടു സീറ്റും സി

ഐ എം

എം ന് അഞ്ച് സീറ്റും എൽ ജെ പി ബി

പി സ്വതന്ത്രർ എന്നിവർ ഓരോ സീറ്റും വീതം നേടി വാൽമീകി നഗർ ല്യോക്സഭാ സീറ്റിൽ ജെ

യു വിന്റെ സുനിൽകുമാർ വിജയിച്ചു്

എ യ്ക്ക് അനുകൂലമായി നൽകിയ ജനവിധിയെ പർാമർശിച്ച് ജനാധിപതൃം ഒരിക്കൽക്കൂടി വിജയിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഡി എ യുടെ ഭരണത്തിനുള്ള അംഗീകാരമാണ്

സ്ത്രീകൾ കൂടുതലായി വോട്ട് ചെയ്തു എല്ലാവരിലും വികസനമെത്തിക്കുക എന്ന മന്ത്രമാണ് ബിഹാർ ഫലത്തിൽ പ്രതിഫലിച്ചത് എല്ലാ മേഖലകളിലും വികസനമെത്തിക്കാനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

സമാജ് വാദി പാർട്ടിക്ക് ഒരു സീറ്റാണ് ലഭിച്ചത് വിജയത്തിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നന്ദി അറിയിച്ചു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബിജെപി ഇതേ പ്രകടനം കാഴ്ചവയ്ക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഗുജറാത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന എട്ടിടത്തും ബിജെപി വിജയിച്ചു

ഛത്തീസ്ഗഡിലെ മാർവാഹിയിൽ കോൺഗ്രസും മണിപ്പൂരിൽ അഞ്ചിൽ നാലിടത്ത് ബിജെപിയും ഒരിട്ടത്ത് സ്വതന്ത്രനും വിജയം നേടി കർണ്ണാടകത്തിൽ രണ്ടിടത്തും ബ്ലിജ്പിയ്ക്കാണ് സീറ്റ് ജാർഖണ്ഡിൽ ജെ എം

നാഗാലാന്റിൽ നാഷണൽ ഡ്രെമ്പോക്കാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയും സ്വതന്ത്രനും ഓരോ സീറ്റ്പ്പിത് നേടി ഹരിയാനയിൽ കോൺഗ്രസ് വിജയിച്ചു

ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെണ്ണലിന് കോവിഡ് മാനദണ്ഡങ്ങൾ മൂലം സമയം അധികം വേണ്ടി വന്നുവെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സെക്രട്ടറി ജനറൽ ഉമേഷ് സിൻഹ പറഞ്ഞു

വിശദാംശങ്ങളുമായി സുരേഷ്

ഷാങ്ങ്ഹാർയി സഹകരണ ചാർട്ടറിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങൾക്ക്നുസൃതമായി പ്രവർത്തിക്കാൻ ഇന്ത്യ എല്ലായ്പ്പോഴും പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആ ചാർട്ടറും ധാരണയും ലംഘിച്ച് ഉഭയകക്ഷി പ്രശ്നങ്ങൾ അനാവശ്യമായി അജണ്ടയിലേക്ക് കൊണ്ടുവരാൻ ആവർത്തിച്ചുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ദൌർഭാഗ്യകരമാണെന്ന് മോദി പറഞ്ഞു

ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ നിർമാണ രാജ്യമെന്ന നിലയിൽ ഈ പ്രതിസന്ധിയെ നേരിടാൻ എല്ലാ മനുഷ്യരെയും സഹായിക്കാനായി ഇന്ത്യ മുഴുവൻ ശേഷിയും ഉപയോഗിക്കും മേഖലയുടെ സമാധാനം സുരക്ഷ സമൃദ്ധി തീവ്രവാദത്തിനെതിരെ ശബ്ദമുയർത്തൽ അനധികൃത ആയുധകടത്ത് മയക്കുമരുന്ന് കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ കാര്യങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് ശ്രീ മോദി ആവർത്തിച്ചു വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഒഡീഷയിലെ കട്ടക്കിലാണ് ആധുനിക സജ്ജീകരണങ്ങളോടെ കാര്യാലയം ഉൾപ്പെടുന്ന സമുച്ചയം സ്ഥാപിച്ചിട്ടുള്ളത്

ജിതേന്ദ്ര സിംഗ് പറഞ്ഞു

അതേസമയം ആഗോളതലത്തിൽത്തന്നെ ഏറ്റവും കുറഞ്ഞ കോവിഡ് മരണനിരക്കാണ് രാജ്യത്ത് രേഖപ്പെടുത്തുന്നത്

ചെന്നൈ കോയമ്പത്തൂർ സേലം ഒഴികെയുള്ള ജില്ലകളിൽ രോഗവ്യാപനം കുറഞ്ഞ തോതിലാണ്

ദേശീയ തലസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പ്രതിദിന വർദ്ധനവാണിത്

എൽ ക്രിക്കറ്റിൽ ഡ്ടൽഹി ക്യാപിറ്റൽസിനെ അഞ്ച് വിക്കറ്റിന് തകർത്ത് മുംബൈ ഇന്ത്യൻസ് കിരീടം സ്വന്തമാക്കി ഐ

എില്ലിൽ അഞ്ചാം തവണയാണ് മുംബൈ ജേതാക്കളാവുന്നത്

മുംബൈ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു

പതിനേഴാം ഓവറിൽ രോഹിതിനെ പുറത്താക്കി ഡൽഹി തിരിച്ചുവരാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല

ക്യാപ്റ്റൻ ശ്രേയസ്സ് അയ്യരും ഋഷഭ് പന്തുമാണ് ഡൽഹിക്ക് അല്പം മികച്ചു സ്കോർ സമ്മാനിച്ചത്

എല്ലിൽ അഞ്ച് കിരീടം നേടുന്ന ആദ്യ ടീമാണ് മുംബൈ ഇന്ത്യൻസ് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഒരു പ്ലോട്ടും ദാവൂദിന്റെ അനുയായി ഇഖ്ബാൽ മിർച്ചിയുടെ അപ്പാർട്ടുമെന്റും സാങ്കേതിക കാരണത്താൽ വിൽപ്പന നടന്നില്ല